കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ സംഘർഷം സമാധാനം നിലനിർത്താൻ ഇന്ത്യ ചൈന ധാരണ

ഐ നിയന്ത്രണത്തിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ്തീരുമാനം ബഹിരാകാശ മേഖലയിലെ സ്ഥകാര്യ് പ്പിങ്കാളിത്തം ഉറപ്പാക്കാനും ക്യാബിനറ്റ് അംഗീകാരം

ഇരു രാജ്യങ്ങളും യഥാർത്ഥ അതിർത്തിയെ ബഹുമാനിക്കുകയും സംയമനം പാലിക്കുകയും ചെയ്യാൻ യോഗ ത്തിൽ ധാരണയായി

ചൈനീസ് വിദേ ശകാര്യമന്ത്രാലയത്തിന്റെ അതിർത്തി കൃസ്മുദ്രകാര്യ വിഭാഗമാണ് ചൈനീസ് സംഘത്തെ പ്രതിനിധീക്കിച്ചത് ജൂൺ ആറിന് ഉന്നത സൈനികോദ്യോഗസ്ഥർ തമ്മിൽ ്നെട്ന്ന് ചർച്ചയിലെ ധാരണകൾ പാലിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനിച്ചതായി വിദേശകാരൃമന്ത്രാലയം അറിറ്റിച്ചു

സൈനിക നയതന്ത്ര ത്രിലത്തിൽ ആശയവിനിമയം തുടരാനും ഇപ്പോഴുള്ള സ്ഥിതഗതികൾ സമാധാനപൂർവ്വം പരിഹരിക്കാനും ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായി

ബി ഐ യുടെ നിയന്ത്രണത്തിലാക്കുന്നത് സംബന്ധിച്ച ഓർഡിനൻസിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി ക്യാബിനറ്റ് യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം രാജ്യത്തെ അർബൻ സഹകരണ ബാങ്കുകളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ കൊണ്ടുവരുന്നതാണ് ഓർഡിനൻസ്

ഐ

ഇതോടെ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കുമേൽ ആർ

ഇന്ത്യൻ നാഷണൽ സ്പെയ്സ് ഓഥറൈസ്ട്ഷൻ സെന്ററിന്റെ സേവനം ഉപയോഗപ്പെടുത്തി രാജ്യിത്ത ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തു സംബന്ധിച്ച് തീരുമാനങ്ങളെടുക്കും ബഹിരാകാശ രംഗത്ത് എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരും ബഹിരാകാശ രംഗത്ത് നിക്ഷേപ സൌഹൃദ നയങ്ങൾ രൂപപ്പെടുത്താൻ ഇൻ സ്പെയ്സ് ലക്ഷ്യമിടുന്നതായും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അറിയിച്ചു

മൃഗസംരക്ഷണ പരിപാലന മേഖലയിലെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അനിമൽ ഹസ്പന്ററി ഇൻഫ്രാസ്ട്രക്ചർ ഡവലപ്മെന്റ് ഫണ്ട് രൂപീകരിക്കുമെന്ന് ഗിരിരാജ് സിംഗ് അറിയിച്ചു ഉത്തർപ്രദേശിലെ ഖുശിനഗർ വിമാന ത്താവളത്തിനെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കും

ജി സി

വിദേശത്ത് ടെസ്റ്റിന് വിധേയമാകാത്ത യാത്രക്കാർ രോഗലക്ഷണമില്ലെങ്കിൽ കൂടി വിമാനത്താവളത്തിൽ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റിൽ വിധേയരാകുകയും പോസിറ്റീവ് ആകുന്നവർ ആർ

സി

പരിശോധനാ സൌകര്യം ഉള്ളതിനാൽ യു എ ഇ യിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് സൌദിയിൽ നിന്ന് വരുന്നവർ പിപിഇ കിറ്റ് ധരിക്കണം

അമിത പലിശ നിരക്ക് കടുത്ത പിടിച്ചെടുക്കൽ നടപടികൾ എന്നിവ സംബന്ധിച്ച നിരവധി പരാതികളുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം